ജെ പി ദേശീയ നിർവ്വാഹക സമിതി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ സമാപിക്കും

സി സി പ്രസിഡന്റ് എം

ഹസ്സൻ ്ത് പ്രളയത്തിൽ തകർച്ച നേരിട്ട ഓരോ മേഖലയ്ക്കും കേന്ദ്രം പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന് സി

ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ്മ സംസ്ഥാനത്തെ ആദ്യ വനസർവ്വേ റെക്കോർഡ് റൂം കോഴിക്കോട്ട് പ്രവർത്തനമാരംഭിച്ചു

ജെ പി ദേശീയ നിർവ്വാഹക സമിതി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ സമാപിക്കും പ്രതിപക്ഷ പാർട്ടികൾക്ക് സങ്കു ചിത താല്പര്യമാണെന്നും വിശാല ഐക്യമെന്നത് പുകമറ സൃഷ്ടിക്കലാണെന്നും യോഗം ഉദ്ഘാടനം ചെയ്ത പാർട്ടി ദേശീയ അധ്യക്ഷൻ അമിത് ഷാ അഭിപ്രായപ്പെട്ടു മോദി ഗവൺമെന്റ് ഇന്ത്യയെ പുനർ നിർമ്മിക്കാൻ പ്രവർത്തിക്കു മ്പോൾ കോൺഗ്രസ് ഇന്ത്യയെ ഭിന്നിപ്പിക്കാനാണ് ശ്രമിക്കു ന്നത്

ജെ

സ്വന്തം താല്പര്യം മാത്രം സംര ക്ഷിക്കുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ ഐകൃം ബി ജെ

ഇന്ന് വൈകിട്ട് സമാപന പരിപാ ടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും

മന്ത്രിമാരും ജനപ്ര തിനിധികളും ഉദ്യോഗസ്ഥരും ജില്ലകളിൽ ധനസമാഹരണത്തിന് നേതൃത്വം നൽകും എല്ലാവരും അവരുടെ സാമ്പത്തിക സ്ഥിതി യനുസരിച്ച് സംഭാവന നൽകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ഒരു മാസത്തെ ശമ്പളമോ പെൻഷനോ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ ജീവനക്കാരും പെൻഷൻകാരും അനുകൂല സമീപനം സ്വീക്രിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ഡാമുകൾ ഒന്നിച്ച് തുറന്നുവിട്ടതടക്കം കാര്യങ്ങൾ മനസ്സിലാക്കാതെ നടത്തിയ നട പടികളാണ് ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചതെന്നും അദ്ദേഹം കാസർകോട്ട് പറഞ്ഞു ജില്ലാ കോൺഗ്രസ് നേതൃ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഹസ്സൻ

പ്രളയത്തിൽ തകർച്ച നേരിട്ട ഓരോ മേഖലയ്ക്കും കേന്ദ്ര ഗവൺമെന്റ് പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന് സി

കർഷക തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനം കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കാർഷികോല്പന്ന വിലത്തകർച്ചയ്ക്കൊപ്പം പ്രളയംകൂടി വന്ന തോടെ കർഷകർ വൻ നഷ്ടം നേരിടുകയാണ് നെൽകൃഷി വ്യാപിപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ശ്രമിക്കുമ്പോൾ കേന്ദ്രം കാർഷിക സബ്സിഡികൾ ഇല്ലാതാക്കുകയാണെന്നും കാനം രാജേന്ദ്രൻ കുറ്റപ്പെടുത്തി പ്രളയക്കെടുതിയിൽനിന്ന് മോചനം പ്രാപിക്കുന്ന കേരളം അടുത്തമാസത്തോടെ വിനോദസഞ്ചാരികളെ സ്വീകരിക്കാൻ സജ്ജമാകുമെന്ന് ടൂറിസംവകുപ്പ് ഡയറക്ടർ പി

വിനോദ സഞ്ചാര കേന്ദ്ര ങ്ങൾക്കോ ഹോട്ടലുകൾക്കോ റിസോർട്ടുകൾക്കോ പ്രളയ ത്തിൽ കാര്യമായ നാശം സംഭവിച്ചിട്ടില്ല തകർന്നുപോയ ഗതാ ഗത സംവിധാനങ്ങൾ പുനഃസ്ഥാപിക്കാൻ ശ്രമങ്ങൾ പുരോ ഗമിക്കുകയാണെന്നും ബാലകിരൺ അറിയിച്ചു

എ പത്തനംതിട്ടയിൽ ആവശ്യപ്പെട്ടു

ശേഷിക്കുന്നവർക്ക് ഉടൻ ധനസഹായം വിതരണം ചെയ്യു മെന്നും ജില്ലാ കലക്ടർ പറഞ്ഞു പ്രകൃതി ദുരന്തത്തിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് പകരം സ്ഥലം കണ്ടെത്തി നൽകാൻ ഇടുക്കി രൂപത രംഗ ത്തുവന്നു

ഏഴ് ഏക്കറോളം സ്ഥലം സമാഹരണ പദ്ധതിയി ലേക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടു പള്ളികളുടെ സ്ഥലം ദാനം ചെയ്യുന്നതിന് ഇടവക പൊതുയോഗം ചേരാനും തീരുമാനി ച്ചിട്ടുണ്ട് പ്രളയക്കെടുതിയെത്തുടർന്നുണ്ടായ ദുരിതാശ്ചാസ പ്രവർത്ത നങ്ങൾക്ക് തുക സമാഹരിക്കുന്നതിന് ആരംഭിച്ച നവകേരള ഭാഗ്യക്കുറിയുടെ പാലക്കാട് ജില്ലാതല വിതരണ ഉദ്ഘാടനം മന്ത്രി എ കെ ബാലൻ നിർവ്വഹിച്ചു

ബി രാജേഷ് എം പി എം

എമാരായ ഷാഫി പറമ്പിൽ വി

പമ്പാ നദിയ്ക്ക് കുറുകെ പുതിയ ലൈൻ സ്ഥാപിച്ചാണ് സന്നിധാന ത്തേയ്ക്ക് വൈദ്യുതി എത്തിച്ചത് പമ്പ മണപ്പുറത്ത് വഴിവി ളക്ക് പുനഃസ്ഥാപിക്കുന്ന ജോലി പുരോഗമിക്കുകയാണ്

ജില്ലാ പഞ്ചാ യത്തും ജില്ലാ ഭരണകൂടവും ഡി ടി

സിയും സംയുക്തമായി നടത്തുന്ന പരിപാടി കരിവള്ളൂരിൽ രാവിലെ മന്ത്രി ഇ ചന്ദ്രശേ ഖരൻ ഫ്ളാഗ് ഓഫ് ചെയ്തു

എമ്മും ഇടത് ഗവൺമെന്റും എം

എക്കെ തിരെ ലൈംഗിക പീഡന പരാതി നൽകിയ യുവതിക്കൊപ്പ മാണെന്ന് മന്ത്രി എ

എഫ്

കെ ശശിക്കെതിരെ നൽകിയ പരാതി അന്വേഷിക്കാൻ എ കെ ബാല നേയും പി

ശ്രീമതിയെയും അംഗങ്ങളാക്കി കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ട് സംഘടനാതലത്തിൽ ഇതിനെപ്പറ്റി അന്വേ ഷിക്കണമെന്നാണ് പരാതിക്കാരിയുടെ ആവശ്യം കമ്മീഷന്റെ അന്വേഷണത്തിൽ തൃപ്തിയായില്ലെങ്കിൽ പരാതിക്കാരിക്ക് യുക്തമായ നടപടിയെടുക്കാം

എൽ എക്കെതിരെ പരാതി നൽകിയ യുവതിയെ നിശ്ശ ബ്ദയാക്കാനാണ് സി

എം ശ്രമിക്കുന്നതെന്ന് കെ

സി പ്രസിഡന്റ് എം എം ഹസ്സൻ കുറ്റപ്പെടുത്തി പരാതി പൊലീസിന് കൈമാറാൻ സി

എം സ്ട്സ്ഥാന സെക്ര ട്ടറിക്ക് ബാധ്യതയില്ലേയെന്ന് അദ്ദേഹം ചോദിച്ചു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃയോഗം കണ്ണൂരിൽ ഉദ്ഘാ ടനം ചെയ്യുകയായിരുന്നു ഹസ്സൻ സംസ്ഥാനത്തെ ആദ്യ വനസർവ്വേറെക്കോർഡ് റൂം കോഴി ക്കോട്ട് പ്രവർത്തനമാരംഭിച്ചു മാത്തോട്ടം വനശ്രീയിൽ മന്ത്രി കെ

സംസ്ഥാനത്തെ മുഴുവൻ വനം സർവ്വേ രേഖകൾ ശേഖരിച്ച് സൂക്ഷിക്കുന്ന സംവിധാനമാണിത് വനമേഖലുമായി ബന്ധപ്പെട്ട കേസുകൾക്കും തർക്കങ്ങൾക്കും സർവ്വേ രേഖകൾ അനിവാര്യമാണ് ഇതിനടിസ്ഥാനമായി വേണ്ടത് വനഭൂമി സ്വകാര്യഭൂമി റവന്യൂഭൂമി എന്നിവയെ വേർതിരിക്കുന്ന രേഖകളാണെന്നും മന്ത്രി ചടങ്ങിൽ പറഞ്ഞു

എഫും യു

എഫ് കൺവീനർ എ വിജയരാഘവനും കെ

സി സി പ്രസിഡന്റ് എം

വിനോദ സഞ്ചാരമേഖലയെ ഹർത്താലിൽനിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് സ്വകാര്യ ബസ്സുകൾ ഓടില്ലെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അറിയിച്ചു പെട്രോളിയം ഉല്പന്നങ്ങളുടെ വിലവർദ്ധ്ന ഉൾപ്പെടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ജനദ്രോഹ നയങ്ങളിൽ പ്രതിഷേധിച്ച് നാളെ ആഹാനം ചെയ്ത ഹർത്താൽ വിജയിപ്പിക്കണമെന്ന് സി ഐ ടി

ഹർത്താൽ പ്രളയ് ദുരിതാശ്ചാസ പ്രവർത്തന ങ്ങളെ ബാധിക്കാതെ നടത്തണമെന്നും സെക്രട്ടറിയേറ്റ് നിർദ്ദേ ശിച്ചു

സംസ്ഥാനത്തെ പ്രളയ സാഹചര്യം പരിഗണിച്ച് രാത്രി യാത്രാ നിരോധനത്തിൽ ഇളവ് നൽകണമെന്ന നീലഗിരി വയ നാട് ദേശീയപാത ആന്റ് റെയിൽവേ ആക്ഷൻ കമ്മിറ്റിയുടെ ഹർജിയിലാണ് സുപ്രീംകോടതിയുടെ നിർദ്ദേശം കേസ് ഒരാ ഴ്ചക്കകം വീണ്ടും പരിഗണിക്കും

എഫ് ഐയുടെ നിലപാടെന്നും ഇക്കാര്യം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപെടുത്തുമെന്നും എസ് എഫ് ഐ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി വി

പരിമിതമായ രീതിയിൽ ആഘോഷങ്ങളില്ലാതെ കലോത്സവം നടത്തണമെന്ന് ശരത് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെ ട്ടു പ്രളയക്കെടുതിയുടെ പേരിൽ സ്കൂൾ കലോത്സവം ഉൾപ്പെടെ യുവജനോത്സവങ്ങൾ മാറ്റിവെയ്ക്കരുതെന്ന് കെ

യു സംസ്ഥാന പ്രസിഡന്റ് കെ

സാമ്പത്തിക ധാരാളിത്തമില്ലാതെ ജനപങ്കാളിത്തത്തോടെ കലോത്സവം നട ത്താൻ ഗവൺമെന്റ് വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച നടത്തണമെന്നും അഭിജിത്ത് പറഞ്ഞു

പരമ്പര ഇംഗ്ലണ്ട് നേര ത്തെതന്നെ സ്വന്തമാക്കിയിട്ടുണ്ട് നവംബർ ഒന്നിന് നടക്കുന്ന തിരുവനന്തപുരം സ്പോർട്സ് ഹബ്ബിലെ ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന ക്രിക്കറ്റ് മത്സര ത്തിന്റെ ടിക്കറ്റ് നിരക്ക് നിശ്ചയിച്ചു

സി എ പ്രത്യേക ജനറൽബോഡി യോഗം തീരുമാ നിച്ചു

എറണാകുളത്ത് ആറുപേർക്ക് എലിപ്പനി സ്ഥിരീകരിച്ചു കണ്ണൂരിൽ നാലുപേരിലും എലിപ്പനി സ്ഥിരീ കരിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിൽ എലിപ്പനി റിപ്പോർട്ട് ചെയ്തതോടെ പാലക്കാട് ജില്ലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി

പാലക്കാട് കോട്ടായി ചെമ്പൈ ഗ്രാമത്തിൽ മന്ത്രി എ

ബാലൻ ഉദ്ഘാടനം ചെയ്തു